തെറാപ്പി നൽകിയെന്ന പരാതിയിൽ പ്രിൻസിപ്പൽ ഗ്വണ്മെന്റിന് ഇന്ന് റിപ്പോർട്ട് നൽകും സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം തൃശൂർ ചെമ്പൂച്ചിറയിൽ മുഖ്യമന്ത്രി വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും ശബരിമല വിഷയത്തിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണ ജെ

ശ്രീധരൻപിള്ള ഹിന്ദി ഇതര മേഖലയിൽ ഹിന്ദിപഠനം അടിച്ചേൽപ്പിക്കില്ലെന്ന് കേന്ദ്ര മന്ത്രി എസ്

കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ക്യാൻസറില്ലാത്ത യുവ തിക്ക് കീമോതെറാപ്പിയടക്കം ചികിത്സ നൽകിയെന്ന പരാതിയിൽ കോളേജ് പ്രിൻസിപ്പൽ ഇന്ന് ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകും മന്ത്രി കെ

ശൈലജ വിശദമായ റിപ്പോർട്ട് നൽകാൻ പ്രിൻസിപ്പലിനോട് ആവശ്യപ്പെടുകയായിരുന്നു മാവേലിക്കര സ്വദേശി രജനിക്കാണ് സ്വകാര്യ ലാബ് റിപ്പോർട്ടിന്റെ അടിസ്ഥാന ത്തിൽ മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി വിഭാഗം ക്യാൻസർ ചികിത്സ നൽകി യത് കീമോതെറാപ്പിയെ തുടർന്ന് രജനിക്ക് കടുത്ത പാർശ്വഫലങ്ങളുണ്ടായതായി പരാതിയിൽ പറയുന്നു സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം വ്യാഴാഴ്ച തൃശൂർ ചെമ്പൂച്ചി റ ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

രവീന്ദ്രനാഥ് വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് വരവേൽക്കും മന്ത്രിമാരായ എ സി മൊയ്തീനും വി

സുനിൽകുമാറും നിയുക്ത എം

എൻ പ്രതാപനും ചടങ്ങിൽ പങ്കെ ടുക്കും

ശ്രീധരൻപിള്ള കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു വിശ്വാസ സംരക്ഷണത്തിനുവേണ്ടി സമരം ചെയ്തവർക്കെതിരായ കേസുകൾ പിൻവലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മതനിരപേക്ഷതയെപ്പറ്റി ഒരുപാട് പറഞ്ഞവർ ഇപ്പോൾ മതപരമായി തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുകയാ ണെന്നും ശ്രീധരൻപിള്ള കുറ്റപ്പെടുത്തി ഹിന്ദി ഇതര മേഖലകളിൽ ഹിന്ദി പഠനം അട്ടിച്ചേൽപ്പിക്കില്ലെന്ന് പിദേ ശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി കേന്ദ്രത്തിന്റെ കരട് വിദ്യാഭ്യാസനയത്തിൽ അന്തിമതീരുമാനമെടുക്കുംമുമ്പ് സംസ്ഥാനങ്ങളുമായി കൂടിയാലോചന നടത്തുമെന്നും മന്ത്രി ട്വിറ്ററിൽ കുറിച്ചു ഹിന്ദിപഠനം നിർബന്ധ മാക്കണമെന്ന നിർദ്ദേശത്തിൽ തമിഴ്നാട്ടിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരു ന്നു ഹിന്ദി ഇതര മേഖലകളിൽ ഹിന്ദി പഠനം നിർബന്ധമാക്കുന്ന കേന്ദ്രനി ലപാട് അതിരുകടന്ന ഭാഷാ ദേശഭക്തി യാണെന്ന് സി പി ഐ എം കുറ്റപ്പെടുത്തി ത്രിഭാഷാ പഠനം നിർബന്ധമാക്കുന്ന നയത്തെ എതിർക്കുന്നതായി പാർട്ടി പൊളിറ്റ് ബ്യൂറോ ഡൽഹിയിൽ അറിയിച്ചു

സംഭവത്തെപ്പറ്റി അടിയന്തരമായി അന്വേഷണം നടത്തണ മെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിരുന്ന് ഒരുക്കിയിരുന്ന ഹോട്ടലിന് പുറത്ത് സുര ക്ഷാസൈനികർ അനാവശ്യമായ സുരക്ഷാപരിശോധന നടത്തി ഏതാനും അതി ഥികളെ മടക്കി അയയ്ക്കുകയും ചടങ്ങ് അലങ്കോലപ്പെടുത്തുകയുമായിരുന്നു

അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്താനാണ് കരസേനാ മേധാവി ജനറൽ വിപിൻ റാവത്തിനൊപ്പം അദ്ദേഹത്തിന്റെ സന്ദർശനം ലോകത്തെ ഏറ്റവും ഉയരമേറിയ സൈനിക താവളമാണ് സിയാച്ചിനിലേത്

ഇതിനായി ഐ ടി ഐ കളെയും നൈപുണ്യശേഷി വികസന അക്കാദമി യെയും പങ്കാളികളാക്കുന്ന വിഷയം ഗൌരവമായി പരിഗണിക്കുമെന്ന് മന്ത്രി പറ ഞ്ഞു വടകര എഞ്ചിനിയറിംഗ് കോളേജ് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു മന്ത്രി വിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ച പുരോഗതി അഭിമാന കരമെന്നും മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമൃം ചെയ്യുമ്പോൾ കേരളം വളരെ മുന്നിലാണെന്നും മന്ത്രി ഇ ചന്ദ്രശേഖരൻ കാസർകോട്ട് പറഞ്ഞു കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിൽ എസ്എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർഥികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

ബാലൻ നിർദ്ദേശിച്ചു ലളിതകലാ അക്കാദമിയുടെ കണ്ണൂർ കക്കണ്ണൻ പാറയിലെ കലാഗ്രാ മത്തിന് കെ

സുബ്രഹ്മണ്യൻ കലാഗ്രാമമെന്ന് നാമകരണം ചെയ്ത് സംസാരി ക്കുകയായിരുന്നു മന്ത്രി ഇന്റർനാഷണൽ സെന്റർ ഫോർ ആർട്സ് ആന്റ് എക്സ ലൻസ് എന്നുകൂടി കലാഗ്രാമത്തിന്റെ പേരിനൊപ്പമുണ്ടാകുമെന്നും എ

ബാലൻ അറിയിച്ചു ചെറുകിട പദ്ധതികളിലൂടെയും സോളാർ പദ്ധതികളിലൂടെയും വൈദ്യുതി ഉത്പാദനം വർദ്ധിപ്പിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി എം

മണി പറഞ്ഞു വൈദ്യുത മേഖലയെ സ്ഥകാര്യവത്കരിക്കാൻ കേന്ദ്രം നടത്തുന്ന ശ്രമം ഉപേക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

എസ് ഇ ബി ഓഫീ സേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി കക്കാട് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ലോകകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ദക്ഷിണാഫ്രിക്കയെ അട്ടിമറിച്ചു

ഇന്ന് ഇന്ത്യൻസമയം ഉച്ച കഴിഞ്ഞ് മൂന്നിന് നോട്ടിംഗ്ഹാമിൽ ഇംഗ്ലണ്ട് പാകിസ്ഥാനെ നേരിടും

പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുക്കും

ഇതിൽ നിന്നാണ് റാഞ്ചിയെ തെരഞ്ഞെടുത്തത്

മുഹമ്മദ് സ്മാരക തിയേറ്ററിൽ മന്ത്രി പ്രൊഫസർ സി

കൊല്ലം പരവൂരിൽ എൻ

യോഗം അലങ്കോലപ്പെടുത്തിയ അഞ്ച് എൽഡിഎഫ് പ്രവർത്ത കരെ പോലീസ് അറസ്റ്റ് ചെയ്തു പൂതക്കുളം മുക്കടയിലെ സ്വീകരണ യോഗത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ ഒരു യുഡിഎഫ് പ്രവർത്തകന് പരിക്കേറ്റിരുന്നു

മരിച്ച സെൽവരാജിന്റെ മൃതദേഹം ഉടുമ്പൻചോലയിൽ എത്തിച്ചപ്പോൾ സി പി ഐ എം പ്രവർത്തകർ കോൺഗ്രസ്സ് ഓഫീസിന് നേരെ കല്ലെറിഞ്ഞു ഇടുക്കി എസ് പിയുടെ നേതൃത്വത്തിൽ വൻ പൊലീസ് സംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ് വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കിയതുമായി ബന്ധപ്പെട്ട തെളി വെടുപ്പിന്റെ ഭാഗമായി ബൂത്ത് ഏജന്റുമാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുമെന്ന്കെ പി സി സി ഉപസമിതി അറിയിച്ചു ബൂത്തിനകത്തെയും പുറത്തെയും ഏജന്റുമാ രോട് വോട്ടർമാരുടെ കൃത്യമായ കണക്ക് ആവശ്യപ്പെടുമെന്നും ഉപതെരഞ്ഞെടു പ്പിന് മുൻപ് റിപ്പോർട്ട് കെ പി സി സിയ്ക്ക് കൈമാറുമെന്നും ഭാരവാഹികൾ അറി യിച്ചു ഉപസമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി

വിന്റെ രക്തപരിശോധനാഫലം ഇന്ന് ലഭിച്ചേക്കും ആലപ്പുഴയിലെയും മണിപ്പാലി ലെയും വൈറോളജി ഗവേഷണകേന്ദ്രങ്ങളിലാണ് രക്തസാമ്പിൾ പരിശോധന നടത്തിയത് എറണാകുളം ജില്ലയിൽ ഒരിടത്തും നിപാബാധ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ഇന്നലെ മന്ത്രി കെ

ശൈലജ വ്യക്തമാക്കിയിരുന്നു

ദേവരാജൻ ആവശ്യ പ്പെട്ടു സ്ഥിരം ജോലി നൽകാൻ സാമ്പത്തിക ഞെരുക്കമുണ്ടെങ്കിൽ സെസ് ഏർപ്പെ ടുത്തി ഫണ്ട് കണ്ടെത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സ്ഥിരം ജോലി ആവശ്യ പ്പെട്ട് താൽക്കാലിക ജീവനക്കാർ നടത്തുന്ന നിരാഹാരത്തിന് പിന്തുണ പ്രഖ്യാ പിച്ച് സംസാരിക്കുകയായിരുന്നു ദേവരാജൻ

മന്ത്രി എം എം മണി ഇന്ന്ഉദ്ഘാടനം ചെയ്യും ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമിന്റെ ജലസമൃദ്ധിയും ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളുടെ ദൃശ്യവും ഒരുമിക്കുന്ന ഹിൽവ്യൂ പാർക്കിലാണ് അഡ്രൈഞ്ചർ ടൂറിസം ആരംഭിക്കുന്നത് വാഴത്തോപ്പ് സർവ്വീസ് സഹകരണ ബാങ്കും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും ചേർന്നാണ് സാഹസിക ടൂറിസം ആരംഭിക്കുന്നത് രാജ്യം ഭീതിയുടെ അന്തരീക്ഷം നേരിടുകയാണെന്ന് മന്ത്രി ടി

യുക്തിയും ചോദ്യങ്ങളുമില്ലാത്ത അന്ധവിശ്വാസ ങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുകയാണ് സഹിഷ്ണുത യില്ലായ്മയും വർദ്ധിച്ചുവരികയാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് ലൈബ്രററി കൌൺസിൽ സാംസ്കാരിക സംഗമം ഉദ്ഘാടനം ചെയ്യവെ പറഞ്ഞു

പബ്ളിക് റിലേഷൻസ് വകുപ്പും ചേർന്ന് ഒരുക്കുന്ന ജനസമക്ഷം ഇടുക്കി ജില്ലയിലെ പഞ്ചായത്തുകളിലൂടെ ഒരു പര്യടനം എന്ന പ്രക്ഷേപണ പരമ്പരയുടെ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് മുരിക്കാശേരി കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും മന്ത്രി എം എം മണി ഉദ്ഘാടനം ചെയ്യും കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ രോഹിണി ആരാധന ഇന്ന്

നാല് ആരാധനകളിൽ അവസാനത്തേതാണ് രോഹിണി ആരാധന ആലിംഗനപു ഷ്പാഞ്ജലിയും ഇന്നാണ് ് വേമ്പനാട് കായലോരത്ത് വൈക്കം നഗരസഭ സംഘടിപ്പിക്കുന്ന വൈക്കം ടൂറിസം ഫെസ്റ്റ് ഇന്നുതുടങ്ങും സാംസ്കാരിക റാലിയോടെയാണ് ഏഴു ദിവസത്തെ ടൂറിസം ഫെസ്റ്റ് ആരംഭിക്കുന്നത്

ക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഒന്നും രണ്ടും പ്രതികളെ പൊലീസ് പിടികൂടി മൂന്നാം പ്രതിയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരു ന്നു

എർത്ത്സെൻറിന്റെയും നിർമ്മാണത്തിന് രാജീവ് അഞ്ചലിനെ ന്യൂയോർക്കിൽ ആദരിച്ചു സമൂഹത്തിന് നൽകിയ സംഭാവന പരിഗണിച്ച് ന്യൂയോർക്ക് സ്റ്റേറ്റ് സെനറ്റർ കെവിൻ തോമസ് അദ്ദേഹത്തിന് പുരസ്കാരവും പ്രിശസ്തി പത്രവും സമ്മാനിച്ചു

എക്സൈസ് സംഘം പിടികൂടി ഇയാളെ ബത്തേരി കോടതിയിൽ ഹാജരാക്കി

ഭാഗികമായി തകർന്നു കാക്കത്തോപ്പ് ഭാഗത്താണ് കഴിഞ്ഞ രാത്രി റോഡ് കടലെടുത്തത് കൊല്ലം നഗരത്തിൽ അർദ്ധരാത്രി മുതൽ മഴ പെയ്യുന്നുണ്ട്

ഓണത്തിന് താലൂക്കുതോറും ജൈവ ചന്ത സംഘടിപ്പിക്കാനും പൂക്കാട് കലാലയത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു

തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി നഴ്സ് മേലൂ രിലെ അമ്പിളിയാണ് മരിച്ചത്

ബംഗളൂരുവിൽ നിന്ന് കൊട്ടാരക്കരയിലേക്ക് പോകുകയായിരുന്ന ബസാണ് പുലർച്ചെ നാലരയോടെ അപകടത്തിൽ പെട്ടത്